ഹരിവംശ് നാരായണൻ സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു

ഇടുക്കി ഡാമിൽ ജ്ലനിരപ്പ് ക്രമാതീതമായി ന് ഉയർന്നതിനെ തുടർന്ന് ചെറുതോണിയിൽ ട്രയൽ റൺ ആരംഭിച്ചു ഡാമിന്റെ ഒരു ഷട്ടർ ഉയർത്തി

ചോർത്തിയതുമായി ബന്ധപ്പെട്ട് കേംബ്രിഡ്ജ് അനലറ്റിക്കക്കെതിരെ സി ബി

ഇന്ന് ലണ്ടനിലെ ലോഡ്സിൽ നടക്കും

എ സ്ഥാനാർത്ഥി ജെ

പ്രതിപക്ഷ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി

ഹരിപ്രസാദിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്

പ്രൊഫ

കുര്യൻ കഴിഞ്ഞമാസം സ്ഥാനമൊഴിഞ്ഞതിനെ ത്രൂട്ടർന്നാണ് തിരഞ്ഞെടുപ്പ്

മാർ പാർലമെന്റ് ഹൌസ് കോംപ്ലക്സിൽ പ്രതിഷേധം തുടർന്നു പ്പക്കാർഡുകൾ ഉയർത്തിയാണ് എം

മാർ പ്രതിഷേധിച്ചത്

ഉരുൾപൊട്ടിയും മണ്ണിടിഞ്ഞും വിവിധ ജില്ലകളിൽ കനത്ത നാശം

ഇടുക്കി വയനാട് മലപ്പുറം ജില്ലകളിലാണ് കൂടുതൽ ദുരിതം

കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് നീലേശ്വരം ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിലിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരും കഞ്ഞിക്കുഴി പെരിയാർ വാലിയിൽ ഉരുൾപൊട്ടലിൽ രണ്ടുപേരുമാണ് മരിച്ചത് അടിമാലി എട്ടുമുറിക്കു സമീപമാണ് ഉരുൾപൊട്ടിയത്

അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു

കതിരാൻ തുരങ്കത്തിന് മുകളിൽ മണ്ണിടിച്ചിൽ തുടരുന്നു

അധികമായി രണ്ട് സംഘത്തെ കൂടി വടക്കൻ കേരളത്തിലെ പ്രതികരണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു

ഇതിന്റെ ഭാഗമായി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു

മീ

ചെറുതോണി ഡാമിന്റെ ഷട്ടർ നാലു മണിക്കൂർ നേരത്തേക്കാണ് തുറക്കുന്നത്

പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുസ്ഥതിനും മത്സ്യം പിടിക്കുന്നതിനും സെൽഫി ചിത്രങ്ങൾ എടുക്കുന്നതിനും ്നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്

ഇടത്പക്ഷ തീവ്രവാദം ശക്തമായ ജില്ലകളിലേയ്ക്കായി പ്രത്യേകിച്ചും പദ്ധതി നടപ്പിലാക്കാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്

ഇന്നലെ റായ്പൂരിൽ നടന്ന യോഗത്തിൽ ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷ്ണർ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി

കുട്ടികളെ പീഡിപ്പിച്ച സ്ഥാപനത്തിന്റെ ഉടമകൾക്ക് ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ പിന്തുണ ഉണ്ടായിരുന്നതായി കോടതി പറഞ്ഞു

സംഭിപ്പത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്

ബി

കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് നടപടി സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രാഥമിക അന്വേഷണ പരിധിയിലുള്ളത് അന്വേഷണം സി ബി ഐ യ്ക്ക് വിട്ട കാര്യം കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് നേരത്തെ രാജ്യസഭയെ അറിയിച്ചിരുന്നു

അതിനെ തുടർന്ന് ഐ ടി മന്ത്രാലയം മാർച്ചിൽ അനലറ്റിക്കയ്ക്കും ഫേസ്ബുക്കിനും കത്തെഴുതിയിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് നീലേശ്ചൂരം മുംബൈയിലെ ഗവാലിയ ടാങ്കിലായിരുന്നു ബ്രിട്ടീഷുകാരെ പുറത്താക്കാനുള്ള തീവ്രയത്നത്തിന്റെ ആരംഭം ഓഗസ്റ്റ് ക്രാന്തിദിനം എന്ന പേരിലാണ് എല്ലാ വ്ർഷവും ഈ ദിനം ആചരിക്കുന്നത് സ്വാതന്ത്രസമരത്തിൽ ആത്മസ്മർപ്പണം ചെയ്ത മുഴുവൻ പേരെയും രാഷ്ട്രപതി രാംനാഥ് ക്ടോവിന്ദ് അനുസ്മരിച്ചു രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് സ്വതന്ത്യ സമരസേനാനികൾക്കായ് വിരുന്നു സത്കാരം ഒരുക്കുമെന്നും ഒരു ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞു കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ എല്ലാവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം സംബന്ധിച്ച് മുൻ പ്രധാനമന്ത്രി അടൽബിഹാരി വാജ്പെയ് രചിച്ച ഒരു കവിത ടിറ്ററിലൂടെ ശ്രീ

പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ ഒരു റിപ്പോർട്ടും പ്രധാനമന്ത്രി പങ്കുവച്ചു കിറ്റ് ഇന്ത്യ പ്രസ്താനത്തിലൂടെ മഹാത്മാഗാന്ധി കൊളോണിയൽ ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയതും സ്വാതന്ത്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണം വേഗത്തിലാക്കാൻ നടത്തിയ പരിശ്രമങ്ങളും റിപ്പോർട്ട് പരമാർശിക്കുന്നു കിറ്റ് ഇന്ത്യാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി വാർത്താ വിഭാഗം പുതിയ ഇന്ത്യ സ്വാതന്ത്യത്തിന്റെ പ്രസക്തി എന്ന പേരിൽ ഇന്നു രാത്രി പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യും

അമേരിക്കൻ ഭരണകൂടം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അടുത്തമാസം മുതൽ ഭീമമായ ഇറക്കുമതി ചുങ്ക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു വളരെ ശക്തമായാണ് ചൈന്യും ഇതിനോട് പ്രതികരിച്ചത്

നാല് തീവ്രവാദികളെ ഇന്നലെ വധിച്ചിരുന്നു പ്രദേശത്ത് സൈന്യത്തിന്റെ തിരച്ചിൽ തുടരുന്നതായി സൈനിക വക്താവ് അറിയിച്ചു തീവ്രവാദികളുടെ സാന്നിദ്ധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് ആരംഭിച്ച തിരച്ചിലിനിടെ ഇന്നലെ ഒരു സൈനിക കമാന്റോക്ക് ഗുരുതരമായ പരിക്കേറ്റു അദ്ദേഹം മിലിറ്ററി ആശുപത്രിയിൽ ചികിത്സയിലാണ്

ഐയുടെ കരട് ഭരണഘടനയ്ക്ക് സുപ്രീംകോടതി ചില ഭേദഗതികളോടെ അംഗീകാരം നൽകി ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഒരു മോട്ട് നയം പരിഷ്കരിച്ച് സുപ്രീം കോടതി സൌരാഷ്ട്ര വഡോദര മുംബൈ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷനുകൾക്ക് സ്ഥിരം അംഗത്വം അനുവദിച്ചു റയിൽവേസ് സർവ്വീസസ് യൂണിവേഴ്സിറ്റീസ് എന്നിവയ്ക്കും സ്ഥിരാംഗത്വം അനുവദിച്ചു

സി ഐയുടെ അംഗീകരിച്ചു ഭരണഘടന ഹാജരാക്കാൻ തമിഴ്നാട് രജിസ്ട്രാർ ഓഫ് സോസൈറ്റീസിനോട് കോടതി നിർദ്ദേശിച്ചു

ആദ്യ മത്സരം ജയിച്ച ഇംഗ്ലണ്ട് പരമ്പരയിൽ മുന്നിലാണ് ആദ്യ ടെസ്റ്റിലെ പ്രാജ്യത്തെ തുടർന്ന് ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടൂണ്ട് ചേതേശ്വർ പൂജാരയും രവീന്ദ്ര ജഡേജയും ടീമിൽ ഇടം നേടി